പുൽവാമയിലെ സൈനികരുടെ രക്തസാക്ഷിത്വത്തിന്റെ ഒന്നാം വാർഷികത്തിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ ശ്രദ്ധാജ്ഞലി രാജ്യത്തിനു വേണ്ടി ജീവൻ ബലിനൽകുകയായിരുന്നു സിആർപിഎഫ് സൈനികരെന്ന് പ്രധാനമന്ത്രി

ഇന്ത്യയും പോർച്ചുഗലും തീരുമാനിച്ചു നിരവധി കരാറുകളിൽ ഒപ്പിട്ടു

കേരള മന്ത്രിസഭായോഗം തീരുമാനിച്ചു

സിക്ക് കിരീടം

പ്പിക്ക്ഫ് സൈനികർക്ക് രാഷ്ട്രപതി രാംനാഥ് കോവീന്ദ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത് ഷാ രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് എന്നിവർ ആദരാഞ്ജലി അർപ്പിച്ചു ധീരരായ സൈനികരുടെ ജീവത്യാഗത്തിന് മുമ്പിൽ രാഷ്ട്രം നന്ദി അറിയിക്കുന്നതായി രാഷ്ട്രപതി ട്വിറ്ററിൽ കുറിച്ചു ഭീകരവാദം തുടച്ചു നീക്കുന്നതിലുള്ള പോരാട്ടത്തിലാണ് രാഷ്ട്രമെന്നും അദ്ദേഹം പറഞ്ഞു

രാജ്യത്തെ സംരക്ഷിക്കാനായി ജീവൻ വെടിഞ്ഞ അപൂർവ്വ വൃക്തിത്വങ്ങളാണ് അവരെന്ന് ശ്രീ മോദി ട്വിറ്ററിൽ കുറിച്ചു

ഇരു രാജൃങ്ങളും ഏഴ് ഉടമ്പടികളിലും ഒപ്പു വച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പോർച്ചുഗീസ് പ്രസിഡന്റ് മാസലോ റെബലോ ഡിസൂസയും ന്യൂഡൽഹിയിൽ നടത്തിയ ചർച്ചുകൾക്ക് ശേഷമാണ് കരാറുകൾ ഒപ്പിട്ടത്

ഇന്ത്യ പോർച്ചുഗീസ് സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്താൻ ചർച്ച സഹായകമാകുമെന്ന് വിദേശകാര്യ വക്താവ് രവീഷ്കുമാർ പറഞ്ഞു നാലു ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നലെ രാത്രിയാണ് പോർച്ചുഗീസ് പ്രസിഡന്റ് ന്യൂഡൽഹിയിലെത്തിയത്

മന്ത്രിസഭാംഗങ്ങളും ഉന്നത ഉദ്യോഗസ്ഥരും പോർച്ചുഗീസ് പ്രസിഡന്റിനെ അനുഗമിക്കുന്നുണ്ട്

ന്യൂസ് ഡസ്ക് ആകാശവാണി

ജഗദ്ഗുരു വിശ്വരഥൃാ ഗുരുക്കുല്പത്തിന്റെ നൂറാം വാർഷികാ ഘോഷ സമാപന സമ്മേളനത്തിൽ പ്പെങ്കെടുക്കാനാണ് പ്രധാനമന്ത്രി എത്തുന്നത്

വാരാണസി ഉജ്ജയിനി ഓംകാരോ ശ്വർ എന്നീ മൂന്നു തീർത്ഥാടന കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന മഹാ കാൽ എക്സ്പ്രസ് അദ്ദേഹം ഫ്ളാഗ്ഓഫ് ചെയ്യും

കാടതിയലക്ഷ്യത്തിനുള്ള നടപടി സ്വീകരിക്കാതിരിക്കണമെങ്കിൽ മുൻ ഉത്തരവ് വേഗം നടപ്പാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു

അബ്ദുൽ നസീർ എം

വെങ്കയ്യ നായിഡു പറഞ്ഞു

രാജ്യത്ത് ഭക്ഷ്യോൽപാദത്തിൽ വർധനയുണ്ടെങ്കിലും വിശപ്പും പോഷകാഹാര കുറവും നാം നേരിടുന്ന പ്രധാന പ്രശ്നമാണ്

ജസ്റ്റിസുമാരായ ആർ ഭാനുമതി അശോക് ഭൂഷൺ എ

ബൊപ്പണ്ണ എന്നിവരടങ്ങുന്ന ബഞ്ചാണ് ഹർജി തള്ളിയത് മാനസിക വെല്ലുവിളി നേരിടുന്ന ആളാണ് താനെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കേസിലെ നാല് പ്രതികളിൽ വിനയ് ശർമ്മ ഒരാളായ രാഷ്ട്രപതിക്ക് ദയാഹർജി നൽകിയത്

കേന്ദ്രബജറ്റിനെകുറിച്ച് ന്യൂഡൽഹിയിൽ സാമ്പത്തിക വൃവസായിക മേഖലയിൽ നിന്നുള്ളവരുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി ബജറ്റിന് ശേഷം ഓഹരി വിപണിയിലും സാമ്പത്തിക മേഖലയിലും ആശാവഹമായ ലക്ഷണമാണ് കാണാനായതെന്നും ധനമന്ത്രി പറഞ്ഞു

ഇത് സംബന്ധിച്ച നടപടികൾ ദേശീയതലത്തിൽ ഏകോപിപ്പിച്ച് നിരീക്ഷിക്കുകയാണെന്ന് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പ്രീതി സുധൻ അറിയിച്ചു

പ്രധാനമന്ത്രിയുടെ ഓഫീസും സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണ് ചൈനയിൽ നിന്നോ വൈറസ് ബാധ കണ്ടെത്തിയിട്ടുള്ള മറ്റ് രാജ്യങ്ങളിൽ നിന്നോ എത്തുന്നവർ മുൻകരുതൽ പാലിക്കണമെന്നും കേന്ദ്ര ആരോഗ്യമന്ത്രാലയം നിർദ്ദേശിച്ചു അടിയന്തിര ഘട്ടങ്ങളിൽ പ്രതികരിക്കുന്നതിന് ആരോഗ്യ സുരക്ഷാ സംഘത്തെ സജ്ജമാക്കി നിർത്തണമെന്നും നിർദ്ദേശമുണ്ട്

നേപ്പാളുമായി അതിർത്തി പങ്കിടുന്ന ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് ബിഹാർ പശ്ചിമ ബംഗാൾ സിക്കിം എന്നീ സംസ്ഥാനങ്ങളും കൊറോണ വൈറസ് ബാധ നിരീക്ഷണം ശക്തിപ്പെടുത്തണമെന്ന് ആരോഗൃ സെക്രട്ടറി ആവശ്യപ്പെട്ടു

മറ്റുള്ള പേർക്കാണ് കൊറോണ വൈറസ് ബാധിച്ചിട്ടുള്ളത്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഇന്ന് ഉച്ചയോടെ നിയന്ത്രണ രേഖയ്ക്ക് സമീപം ജനവാസ മേഖലയിലാണ് വെടിവെയ്പും ഷെല്ലാക്രമണവും ഉണ്ടായത്

ന്യൂഡൽഹിയിൽ ആൾ ഇന്ത്യ റേഡിയോയുടെ പ്രാദേശിക വാർത്താ യൂണിറ്റുകളുടെ ദേശീയ സമ്മേളനത്തിൽ നടന്ന ചടങ്ങിൽ വാർത്താവിതരണ പ്രക്ഷേപണ സെക്രട്ടറി രവി മിത്തൽ വെബ്സൈറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ആകാശവാണിയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ മികവുറ്റതാക്കണമെന്നും ശ്രോതാക്കൾ മറ്റുമാധ്യമങ്ങളെ ആശ്രയിക്കുന്ന അവസ്ഥ ഉണ്ടാക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു

ബി ഐ നൽകിയ ഹർജിയിൽ സുപ്രീം കോടതി നോട്ടീസയച്ചു ചീഫ് ജസ്റ്റിസ് എസ്

ബോബ്ഡെ ജസ്റ്റിസുമാരായ ബി

ഗവായി സൂര്യകാന്ത് എന്നിവരടങ്ങിയ ബഞ്ചാണ് ലാലുവിനോട് വിശദീകരണം തേടിയത്

പുഗേവാഡി മുക്ക് ്സാന്ത് തുക്കാറാം വരെയും ആനന്ദ് നഗർ മുതൽ ഗാർവെയ്ൻ കോളേജ് വരെയുമുള്ള മെട്രോ ലൈൻ മാർച്ച് അവസാനത്തോടെ പ്രവർത്തനക്ഷമമാകും

ഇഗ്നോയുടെ തിരുവനന്തപുരം മേഖലാ കേന്ദ്രത്തിലെ ബിരുദദാനം നിയമസഭാസ്പീക്കർ ശ്രീ

വിദ്യാഭ്യാസ ഭേദഗതി സംസ്ഥാന ചരക്കുസേവന നികുതി ഭേദഗതി കേരള മിനറൽസ് വെസ്റ്റിംഗ് ഓഫ് റൈറ്റ്സ് കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ് ബോർഡ് ഭേദഗതി കോ ഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഭേദഗതി അഗ്രികൾച്ചറൽ വർക്കേഴ്സ് ഭേദഗതി ലേബർ വെൽഫയർ ഫണ്ട് ഭേദഗതി യൂണിവേഴ്സിറ്റി ഓഫ് ഡിജിറ്റൽ സയൻസസ് ഇന്നൊവേഷൻ ആന്റ് ടെക്നോളജി എന്നീ ഓർഡിനൻസുകളുടെ കാലാവധി കഴിയുന്ന സാഹചര്യത്തിലാണ് മന്ത്രിസഭാ തീരുമാനം